രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ശ്രീന ഗറിലെത്തി സൈനികരുടെ ധൈര്യവും ആത്മസമർപ്പണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് കർഗിൽ വിജയ് ദിവസമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അന്തർ ദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി

യുദ്ധത്തിൽ കർഗിൽ മേഖലയുടെ നിയന്ത്രണം പൂർണമായും പാക്കിസ്ഥാ നിൽ നിന്ന് ഇന്ത്യ തിരിച്ചു പിടിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കർഗിൽ യുദ്ധത്തിൽ വീര മൃത്യു വരിച്ച സൈനികർക്ക് ആദരാജ്ഞലി അർപ്പിക്കാനായി ശ്രീനഗറിൽ എത്തി ദ്രാസിൽ നടക്കുന്ന വിജയ് ദിനാഘോഷ പരി പാടിയിൽ പങ്കെടുക്കാൻ മോശും കാലാവസ്ഥ കാരണം രാഷ്ട്ര പതിക്ക് കഴിഞ്ഞില്ലെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറി യിച്ചു

ശ്രീനഗറിൽ നിന്ന് ഹെലികോ പ്ടർ മാർഗമാണ് രാഷ്ട്രപതി ബദാമിബാഗ് കന്റോൺമെന്റിൽ എത്തിയത്

മാതൃഭൂമിയെ സംരക്ഷിക്കാൻ എല്ലാം ത്യജിച്ച ധീര യോദ്ധാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി അദ്ദേഹം ട്ടിറ്ററിൽ അറിയിച്ചു ഭാരത് മാതാവിന്റെ എല്ലാ ധീരമ ക്കൾക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തായും പ്രധാനമന്ത്രി അറിയിച്ചു

പ്രദേശം സന്ദർശിച്ചതിന്റെയും സൈനികരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെയും ചിത്രങ്ങളും മോദി ട്വീറ്റ് ചെയ്തു കർഗിൽ യുദ്ധസമയത്ത് തനിക്ക് അവിടെ പോകാനും സൈനി കരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും സാധിച്ച കാര്യവും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു കൊച്ചി നാവിക കേന്ദ്രത്തിൽ വൈസ് അഡ്മിറൽ എ കെ ചൌള യുദ്ധസ്മാരകത്തിൽ പുഷ്പ ചക്രം സമർപ്പിച്ചു നാവിക കേന്ദ്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർമാർ ചടങ്ങിൽ സംബന്ധി ച്ചു

കോഴിക്കോട് ക്യാപ്റ്റൻ വിക്രമിന്റെ സ്മൃതി മണ്ഡപത്തിലും ആദരസൂചകമായി പുഷ്പാർച്ചന നടന്നു കർഗിൽ ദിനത്തോടനുബന്ധിച്ച് ഏഴിമല നാവിക അക്കാദമി സന്ദർശിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കും നാളെ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് സമയം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൊണ്ടുവരണമെന്ന് അക്കാദമി അധികൃതർ അറിയിച്ചു

വൈകീട്ട് ആറിന് ബംഗളൂരുവിൽ നട ക്കുന്ന ചടങ്ങിൽ ഗവർണർ വാജുഭായ് വാല അദ്ദേഹത്തിന് സത്യ വാചകം ചൊല്ലിക്കൊടുക്കും രാവിലെ ഗവർണറെ കണ്ട യെദ്യൂ രപ്പ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശം ഉന്നയിക്കുക യായിരുന്നു തുടർന്ന് യെദ്യൂരപ്പയെ മന്ത്രിസഭയുണ്ടാക്കാൻ ഗവർണർ ക്ഷണിച്ചു മന്ത്രിസഭയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണ്മെന്നത് സംബ ന്ധിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ചർച്ച ചെയ്യുമെന്ന് യെദ്യൂരപ്പ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു പ്രതി പക്ഷ നേതാവായതിനാൽ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പ്രത്യേക നിയമസഭാ കക്ഷിയോഗം ചേരേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുമാരസ്ഥാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ മന്ത്രിസഭ വിശ്വാസവോട്ടെടുപ്പിൽ പരാജ യപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാജിവെച്ചിരുന്നു

എറണാകുളം പൊലീസ് ലാത്തിച്ചാർജിൽ എം എൽഎ അടക്കം നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റ സംഭവ ത്തിൽ തന്റെ പ്രസ്താവനയിൽ ഉറച്ച് നിൽക്കുന്നതായി സിപിഐ സംസ്ഥാന ്സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു പൊലീസിനെ വിശ്വസിക്കുന്നുവെന്ന് താൻ പറഞ്ഞിട്ടില്ല കലക്ടറുടെ അന്വേ ഷണ റിപ്പോർട്ട് വന്ന ശേഷം ഇതേ കുറിച്ച് പ്രതികരിക്കാമെന്ന് അദ്ദേഹം ആലുവയിൽ വ്യക്തമാക്കി എറണാകുളത്ത് സിപിഐ മാർച്ചിന് നേരെയുണ്ടായ ലാത്തിചാർജ് സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്ന് സിപിഐ നേതാവു കൂടിയായ മന്ത്രി വി എസ് സുനിൽ കുമാർ വ്യക്തമാ ക്കി പാർട്ടി കാര്യങ്ങൾ സെക്രട്ടറി കാനം രാജേന്ദ്രനും ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പുറയുമെന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആലപ്പുഴയിൽ കാനം രാജേന്ദ്രനെതിരെ പോസ്റ്റർ ഒട്ടിച്ച കാര്യം അറിയില്ലെന്നും സുനിൽ കുമാർ പറഞ്ഞു എറണാകുളത്ത് പൊലീസ് ലാത്തിചാർജിൽ സിപിഐ എം എൽ എ അടക്കം നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കലക്ടർ തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചേക്കും വിഷയം എൽ ഡി എഫിൽ പ്രധാന ചർച്ചയായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി കലക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടത്

എറണാകുളത്ത് പൊലീസ് ലാത്തി ച്ചാർജിൽ സിപിഐ എം എൽ എ അടക്കം നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റത് ഉൾപ്പെടെ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രമൃമായി പരിഹരിക്കു മെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കോൺഗ്രസ് ഒരു പക്ഷത്ത് ചേർന്നല്ല നടപടികൾ സ്വീകരിച്ചത് തെറ്റിദ്ധാരണയുണ്ടെ ങ്കിൽ തിരുത്തുമെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരായ ബി ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണന്റെ പരാ മർശം സംബന്ധിച്ച അടിയന്തർപ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു കോൺഗ്രസിലെ ആന്റോ ആന്റണിയാണ് ലോക്സഭയിൽ അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയെ സാഹസിക ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാംപ്യൻഷിപ്പ് പൂലിക്കയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ഗൈഡ് ലൈൻ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു ഈരംഗത്ത് റജിസ്ട്രേഷൻ സമ്പ്രദായം ആരംഭിച്ച ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും തിരുവനന്തപുരം കാട്ടാക്കടയിൽ സാഹസിക അക്കാദമി ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ചാംപ്യൻഷിപ്പിൽ ഇന്ത്യൻ ആർമി നേവി ടീമുകളിൽ നിന്നുൾപ്പടെ നൂറോളം താരങ്ങളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാനു വിനോദ സഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം കൌൺസിലും സംയുക്തമായാണ് ഏഷ്യയിലേ തന്നെ ഏറ്റവും വലിയ കയാക്കിങ്ങ് സംഘടിപ്പിക്കുന്നത് ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും ബി സായ് പ്രണീതും ക്വാർട്ടറിൽ കടന്നു ജപ്പാന്റെ അകാനേ യാമാഗൂച്ചിയാണ് കാർട്ടറിൽ സിന്ധുവിന്റെ എതിരാളി സായ് പ്രണിത് ഇന്തോനേഷ്യയുടെ ടോമി സുഖിയാർത്തോയെ നേരിടും

ഇന്നലെ വനിതാ വിഭാഗം മത്സ രത്തിൽ കോട്ടയം ചാമ്പ്യൻമാരായി തൃശൂരിനാണ് രണ്ടാം സ്ഥാനം

മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് കർഷക സംഘടനാ പ്രതിനിധികളുട് കർഷകരും പൊതുജനങ്ങളും ബിൽ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകൻ കെ വി സുരേന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് സിപിഐഎം പ്രവർത്ത കർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി രണ്ടു പേരെ വെറുതെ വിട്ടു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അല്പ സമയത്തിനകം ശിക്ഷ വിധിക്കും തിരുവനന്തപുരത്തും കോഴിക്കോടും വ്യാജനോട്ട് പിടിച്ചെ ടുത്ത സംഭവത്തിൽ സംസ്ഥാന പൊലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം റൂറൽ എസ് പിയോടും കോഴി ക്കോട് പൊലീസ് കമ്മീഷണറോടുമാണ് റിപ്പോർട്ട് തേടിയത്

അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തെ സ്കേറ്റേർഡ് വിഭാഗം ചുമട്ട് തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംശദായമായി നിക്ഷേപിച്ച തുക ഉടൻ തിരിച്ചു നൽകുമെന്ന് ചുമട്ട് തൊഴിലാളി ബോർഡ് ചെയർമാൻ അറിയിച്ചതായി കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻറ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി

സി സംസ്ഥാന വൈസ് പ്രസിഡണ്ട് കെ

രാഘവൻ കണ്ണൂരിൽ പറഞ്ഞു

കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന ഇരുവഴിഞ്ഞി പ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇന്നലെ രാത്രിയിൽ പുഴയുടെ ഉത്ഭവസ്ഥാനമായ വനമേഖലകളിൽ പ്രെയ്ത മഴയാണ് ഇതിന് കാരണം ഇന്ന് ജില്ലയിൽ രാവിലെ ഒറ്റപ്പെട്ട മഴയാണ് പെയ്തത്

പരുക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളെജിൽ പ്രവേശിപ്പിച്ചു കൂടരഞ്ഞിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസാണ് അപകടത്തിൽപെട്ടത് ഇന്ന് ലോക കണ്ടൽ ദിനം കണ്ടൽ ചെടികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് കണ്ടൽ ദിനം ആചരിക്കുന്നത് വർഷകാലം മുതൽ തന്നെ പുഴയിൽ രൂപ പ്പെടുന്ന ശക്തമായ കാറ്റ് കരയിലേക്ക് കടത്തി വിടാതെ പ്രതി രോധിക്കുന്നത് കണ്ടൽ മരങ്ങളാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം സംഭവിച്ച കണ്ടൽ നാശനഷ്ടങ്ങൾ ഫോറസ്റ്റ് പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി വീണ്ടും നട്ടു പിടിപ്പിക്കാ നുള്ള ഗ്രശമങ്ങൾ നട ന്നു വരികയാണ്

സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനനുസരിച്ച് ഗവൺമെന്റ് ജീവനക്കാരിലും മികച്ച മാറ്റങ്ങളുണ്ടാകുമെന്നും കലക്ടർ പറഞ്ഞു